ഗുരു ശിഷ്യ പരമ്പരയെന്നത് സംസ്കാരത്തി ന്റെയും പൈതൃകത്തിന്റെയും സവിശേഷ ഘടകമാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ധന വില വർദ്ധനയ്ക്കെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തുമെന്ന് കോൺഗ്രസ് വെസ്റ്റിൻഡീസിന്റെ ഇന്ത്യൻ പര്യടനത്തിലെ മത്സരക്രമം പ്രഖ്യാപിച്ചു

സംസ്ഥാനത്ത് ഇന്നലെ എലിപ്പനി ബാധിച്ച് അഞ്ചുപേർ മരിച്ചു മലപ്പുറത്ത് രണ്ടും കൊല്ലം കോട്ടയം എറണാകുളം ജില്ലകളിൽ ഓരോരുത്തരുമാണ് മരിച്ചത്

കൊല്ലത്ത് രണ്ടുപേർക്കും മലപ്പുറത്ത് ഒരാൾക്കും മലേറിയയും സ്ഥിരീകരിച്ചു

എട വണ്ണ ചെട്ടിപ്പടി എന്നിവിടങ്ങളിലെ യുവാക്കളാണ് മരിച്ചത്

ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

എലിപ്പനി ചികിത്സയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജെറി യാട്രിക് വാർഡുകൾ സജ്ജമാണെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചു സ്കാനിംഗ് മെഷീൻ ഉൾപ്പെടെ അടിയന്തര ചികിത്സയ്ക്ക് എല്ലാ സൌകര്യവും ഏർപ്പെടുത്തി യിട്ടുണ്ട്

ആലപ്പുഴ ജില്ലയിൽ എലിപ്പനി രോഗം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യവകൂപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജീവ് സദാനന്ദന്റെ അധ്യക്ഷ തയിൽ ചേർന്ന യോഗം വിലയിരുത്തി

പല യിടങ്ങളിലും ചിക്കൻപോക്സും കണ്ടുവരുന്നുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ് ് ് ് ് പ്രളയത്തിന്റെ ആഘാതം വിലയിരുത്താൻ ലോകബാങ്ക് സംഘം സംസ്ഥാനത്തെ എട്ട് മേഖലകളായി തിരിച്ച് സന്ദർശനം നടത്തും

സന്ദർശനത്തിന്റെ ഭാഗ മായി സംഘം എറണാകുളം ജില്ലയും സന്ദർശിക്കുമെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ് അറിയിച്ചു ജില്ലാ കലക്ടർമാരും വകുപ്പുതല ഉദ്യോഗസ്ഥന്മാരുമായി നട ത്തിയ വീഡിയോ കോൺഫറൻസിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ് ് ് ് ് ് പ്രളയാനന്തരം കാർഷികമേഖലയിലുണ്ടായ മാറ്റങ്ങളെകുറിച്ച് കേന്ദ്ര സംഘം മലപ്പുറം ജില്ലയിലെ അരീക്കോട് മേഖലയിൽ പഠനം തുടങ്ങി ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരാണ് സംഘത്തിലുള്ളത് എട വണ്ണ ഊർങ്ങാട്ടിരി പുൽപറ്റ പഞ്ചായത്തുകളിലാണ് ഇന്നലെ പ്രിശോധന നടന്ന ത് സംഘം ഇന്ന് നിലമ്പൂർ ബ്ലോക്കിലെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങൾ പരി ശോധിക്കും

പ്രളയ ദുരന്തത്തിനിരയായവർക്ക് എല്ലാ ആനു കൂല്യങ്ങളും ലഭ്യമാക്കു മെന്നും ആർക്കും ആശങ്ക വേണ്ടെന്നും അദ്ദേഹംവ്യക്തമാക്കി

അധ്യാപകരുടെ സാമൂഹ്യ സാമ്പത്തിക പദവികൾ ഉയർത്തു കയും അവരുടെ കഴിവുകൾ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ഉപയോഗി ക്കുകയും ചെയ്യുന്നതിന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയാണ് ദിനാഘോഷ ത്തിന്റെ ലക്ഷ്യം

ഗുരു ശിഷ്യ പരമ്പര എന്നത് നമ്മുടെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും സവിശേഷ ഘടകമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു ചരിത്രാതീതകാലം മുതൽ സത്യാ ന്വേഷികളെ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നയിച്ച മഹാന്മാരായ ഗുരുക്കന്മാരാൽ നമ്മുടെ സംസ്കാരം അനുഗ്രഹീതമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു

രാജ്യത്ത് വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് അധ്യാപകർ നടത്തുന്ന യത്നങ്ങളെ പ്രധാനമന്ത്രി അനുമോദിച്ചു ഒരു അധ്യാപകൻ ജീവിതകാലം മുഴു വൻ അധ്യാപകനാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സമൂഹത്തെ സ്കൂൾ വികസന ത്തിൽ സമഗ്ര പങ്കാളികളാക്കുന്നതിന് അവാർഡ് ജേതാക്കൾ പ്രയത്നിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ധന വിലവർദ്ധനയ്ക്കെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തുമെന്ന് കോൺഗ്രസ് അറിയിച്ചു ഡീസലിന്റെയും പെട്രോളിന്റെയും വില കുത്തനെ കൂടു ന്നതുമൂലം രാജ്യത്ത് ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണെന്ന് പാർട്ടി വക്താവ് മനീഷ് തിവാരി ന്യൂഡൽഹിയിൽ പറഞ്ഞു ഇന്ധന വിലവർദ്ധന സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഗുണകരമാണെന്നും കൂടുതൽ വരുമാനമുണ്ടാകാൻ ഇത് സഹാ യകമാകുമെന്നും ബി ജെ പി വക്താവ് പ്രതികരിച്ചത് അവരുടെ ഇക്കാര്യത്തിലെ മനോഭാവമാണ് വെളിച്ചത്തുകൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി

സ്കൂളുകൾക്ക് രണ്ടാം ശനിയാഴ്ച ഒഴികെ ശനിയാഴ്ചകൾ ഇനി മുതൽ പ്രവൃത്തിദിനമാണെന്ന പ്രചാരണം ശരിയല്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു ഈ മാസം ഏഴിന് ചേരുന്ന കാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം മോണി റ്ററിംഗ് കമ്മിറ്റി യോഗം ഇതുസംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുമെന്ന രീതി യിൽ ചില ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരിക്കുന്ന വാർത്തയും അടിസ്ഥാന രഹിതമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

രണ്ടു ടെസ്റ്റുകളും അഞ്ച് ഏകദിനവും മൂന്ന് ട്ന്റി ട്വന്റി മത്സര ങ്ങളും അടങ്ങുന്ന പരമ്പര അടുത്തമാസം നാലിന് ആരംഭിക്കും ഏകദിന പരമ്പര യിലെ അഞ്ചാം മത്സരം നവംബർ ഒന്നിന് തിരുവനന്തപുരം ഗ്രീൻ ഫീൽഡ് സ്റ്റേഡി യത്തിൽ നടക്കും

പാസഞ്ചർ തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ പുനലൂർ കൊല്ലം പാസഞ്ചർ കൊല്ലം പുനലൂർ പാസഞ്ചർ എറണാകുളം കായംകുളം പാസഞ്ചർ കന്യാകു മാരി എറണാകുളം പാസഞ്ചർ എന്നിവ ഇന്ന് പൂർണ്ണമായും റദ്ദാക്കിയതായി റെയിൽവെ അറിയിച്ചു ് കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് കാട്ട അപര്യാപ്തമാണെന്നും അപേ ക്ഷകരുടെ എണ്ണത്തിനനുസരിച്ച് അത് പുനർ നിർണ്ണയിക്കണമെന്നും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ആവശ്യപ്പെട്ടു മലപ്പുറം പ്രസ് ക്ലബ്ബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരി പ്പൂർ വിമാനത്താവളത്തെ എംബാർക്കേഷൻ പോയന്റാക്കി പുനസ്ഥാപിക്കണ മെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

പ്രളയംമൂലം പത്തനംതിട്ട മണിയാർ ജലസംഭരണിക്കുണ്ടായ തകർച്ച പരിഹരിക്കാൻ നിലവിലെ വെള്ളം പൂർണ്ണമായും ഒഴുക്കികളയേണ്ടി വരുമെന്ന് അധികൃതർ അറിയിച്ചു സംഭരണിയുടെ രണ്ട് ഷട്ടറുകളിലെ വെള്ളം ഒഴുക്കിവി ടുന്ന ഭാഗത്തെ കോൺക്രീറ്റാണ് അടർന്നുപോയത്

ദുരിതബാധിതർക്ക് കേന്ദ്രം നൽകിയ പണം സംസ്ഥാന ഗവൺമെന്റ് വക മാറ്റുന്നതായി ബി ജെ പി ദേശീയ നിർവാഹകസമിതി അംഗം പി

കൃഷ്ണ ദാസ് ആലപ്പുഴയിൽ ആരോപിച്ചു പ്രളയം മനുഷ്യ നിർമ്മിത കൂട്ടക്കുരുതിയാ ണെന്നും അദ്ദേഹം പറഞ്ഞു

് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് നാശനഷ്ട കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുന്ന റേഷൻ വ്യാപാരികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് എറണാകുളം ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട തിനെ തുടർന്ന് തുടർപരിശോധനകൾ ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു

ദുരിതാശ്വാസ ധനസഹായം നൽകി

പ്രളയബാധിത പ്രദേശങ്ങളായ ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് വയ നാട് ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഈ മാസം നടത്താനിരുന്ന വിചാരണ റദ്ദ് ചെയ്തതായി സംസ്ഥാന കർഷക കടാശ്വാസ കമ്മീഷൻ അറിയിച്ചു

എട്ടുകോട്ടി രൂപയുടെ ചെക്ക് തിരുവനന്തപുരത്ത് മന്ത്രി ഇ

ജയരാജന് എസ് ബി ഐ റീട്ടെയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് മാനേജിംഗ് ഡയറക്ടർ പ്രവീൺകുമാർ ഗുപ്ത കൈമാറി

മണി കണ്ണൂരിൽ നിര്യാതനായി

കൊടിയേറ്റം മുതൽ കഥാപുരുഷൻ വരെ ഏഴ് അടൂർ ചിത്രങ്ങളുടെ എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട് മുഖാമുഖത്തിലെ എഡിറ്റിങ്ങിന് സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് തമിഴ്തെലുങ്ക് കന്നഡ ഒറിയ ബംഗാളി സിംഹള ഭാഷകളിലും ഇദ്ദേഹം എഡിറ്ററായിരുന്നു സംസ്കാരം ഉച്ചയ്ക്ക് രണ്ടിന് ചാലിൽ എൻ

എസ് ശ്മശാനത്തിൽ നടക്കും

ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമുണ്ടായ മേഖലകളിലെ പുനരധിവാസം കരുതൽ നടപടികൾ ആരോഗ്യ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യ ങ്ങൾ എന്നിവ പരിപാടിയിൽ ഉൾപ്പെടുത്തും അടിയന്തര വായ്പകൾ മുദ്ര വായ്പ ഇതര കേന്ദ്രപദ്ധതികൾ എന്നിവയെ പറ്റി വിദഗ്ദ്ധർ ക്ലാസുകളെടുക്കും വെള്ളി യാഴ്ച കേളകത്ത് ജനസമ്പർക്ക പരിപാടികൾ സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും